മുഖ്യമന്ത്രി നെതർലന്റ്സ് രാജദമ്പതികൾ ഇന്ന് ആലപ്പുഴ സന്ദർശിക്കും

ടൂർണമെന്റിന്റെ റൌണ്ട് റോബിൻ ലീഗ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ബ്രിട്ടണുമായി ഏറ്റുമുട്ടും

ഇതു സംബന്ധിച്ച് കമ്പനികൾക്ക് ഗവൺമെന്റ് നോട്ടീസ് നൽകിയതായി അദ്ദേഹം മുംബൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

കമ്പനികളിൽ നിന്നുള്ള മറുപടി നിർണ്ണായകമാണെന്നും ഉൽപ്പന്നങ്ങൾ വില വളരെ കുറച്ച് വിൽക്കുന്നത് ചില്ലറ വ്യാപാര രംഗത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഉൽപ്പാദകർക്കും ഉപഭോക്താക്കൾക്കും ഇടയിൽ മധ്യവർത്തിയായി പ്രവർത്തിക്കാൻ മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് അനുമത്രി നൽകിയിട്ടുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ഓൺലൈൻ വ്യാപാര രംഗൂരിത്ത് പുതിയ പ്രവണതയെ ചോദ്യം ചെയ്ത് അഖിലേന്ത്യാ വ്യാപാര സംപ്പ്ട്ടന വാണിജ്യമന്ത്രാലയത്തിന് നൽകിയ പരാതിയിലാണ് നടപടി

സി യുടെ സേവനം റെയിൽവേ നിർത്തുന്നതായുള്ളിപ്പചാരണം വെറും കിംവദന്തിയാണെന്നും മന്ത്രാലയം ഇക്കാര്യത്തിൽ തീരുമാ്നമൊന്നും കൈക്കൊണ്ടിട്ടില്ലെന്നും റെയിൽവേമന്ത്രി കൂടിയായി ഗ്രീ ഗോയൽ വ്യക്തമാക്കി

ഹരിയാനയിലെ ഗോഹാന ഹിസാർ എന്നിവിടങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തെരഞ്ഞെടുപ്പ് യോഗങ്ങളെ അഭിസംബോധന ചെയ്യും മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിങ്ങും വിവിധ സ്ഥലങ്ങളിൽ പ്രചാരണം നടത്തും

മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഇന്നലെ വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തു

നരേന്ദ്രമോദി പറഞ്ഞു

എം

മുംബൈ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യം കൈകാര്യം ചെയ്യുന്ന വിഭാഗം ബുധനാഴ്ചയാണ് സുർജിത്ത് സിംഗിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത് സുർജിത് തട്ടിപ്പ് നടത്തുന്നതിനായി തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തതായി അന്വേഷണ ഏജൻസി പറഞ്ഞു ഇന്നലെ പോലീസ് റിമാന്റ് കാലാവധി പൂർത്തിയായ പി എം

സർവ്വീസ് ഫീസായി ട്ടിര് ൻസ്റാളറാണ് പാകിസ്ഥാൻ അധികൃതർ ഈടാക്കുന്നത് ഇത് റദ്ദാക്കണ്ണ്ട്മന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു

കർത്താപൂരിലെ ദർബാർ സാഹിബ്ഖും ഗുർദാസ്പൂർ ജില്ലയിലെ ദെരാബാബാ നാനാക് ദർഗയും തമ്മിൽ ബന്ധീപ്പിക്കുന്നതാണ് കർത്താർപൂർ ഇടനാഴി

കയറ്റുമതിക്കായി പ്രതിരോധ മേഖലയിലെ ഉത്പാദനം ഇനിയും വർദ്ധിപ്പിക്കുന്നതിനൊപ്പം മികച്ച പ്രതിരോധ ഉത്പാദന താത്പര്യ കേന്ദ്രമായി മാറ്റാൻ മാർഗങ്ങൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

സഞ്ജയ് ജജു പറഞ്ഞു

ആരോഗ്യ പരിപാലനം രോഗം എന്നിവ സംബന്ധിച്ച വിഷയങ്ങൾ നിർണയിക്കുമ്പോൾ അടിസ്ഥാനപരമായ മുൻഗണനകൾക്ക് കൂടുതൽ പരിഗണന നൽകണമെന്നും ശ്രീ ജിതേന്ദ്രസിങ് അഭിപ്രായപ്പെട്ടു

എഴുത്തുപരീക്ഷകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി നിയമനങ്ങൾ സുതാര്യവും വൃക്തവുമായ രീതിയിൽ നിയമനം നടത്താൻ ആന്ധ്രാപ്രദേശ് പി എസ്

ജഗൻ മോഹൻ റെഡ്സി നിർദ്ദേശം നൽകി

വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളിലേയും മുഖ്യ്മന്ത്രിമാർ കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് കൂടിക്കൂഴ്ച്ച നടത്തിയിരുന്നു

പറമ്പിക്കുളം ആളിയാർ പാണ്ടിയാർ പുന്നമ്പുഴ തുടങ്ങിയ പദ്ധതികൾക്കുള്ള ജലം പങ്കുവയ്ക്കലിനായാണ് പ്രധാനമായും പാനലുകൾ രൂപവൽക്കരിച്ചത് ഓരോ പാനലിലും ഇരുപക്ഷത്തു നിന്നും അഞ്ചുവീതം അംഗങ്ങൾ ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന് തമിഴ്നാട് അറിയിച്ചു തമിഴ്നാട് പൊതുമരാമത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോ മണിവാസൻ കാവേരി സാങ്കേതിക വിഭാഗം ചെയർമാൻ ആർ സുബ്രഹ്മണ്യം സംസ്ഥാന ഊർജ്ജ വിനിയോഗ സ്ഥാപനമായ ടാൻജഡ്കോ സൂപ്രണ്ടിങ് എഞ്ചിനീയർ എ മുനവർ സുൽത്താന തുടങ്ങിയവർ ഇരുപാനലിലെയും അംഗങ്ങളാകും കൂടാതെ ഒരു പൊതുമരാമത്ത് സൂപ്രണ്ടിങ് എഞ്ചിനീയറും ഒരു വിരമിച്ച ഉദ്യോഗസ്ഥനും സമിതിയിൽ അംഗങ്ങളായിരിക്കും കേരളവും സമാനമായ പാനലിന് ഉടൻ തന്നെ രൂപം നൽകുമെന്നാണ് പ്രതീക്ഷ

തങ്ങളുടെ അതിർത്തി വഴി അമേരിക്കയിലേക്ക് ആളുകൾ കടക്കുന്നത് തടയാൻ മെക്സിക്കോയുടെ ഭാഗത്ത് നിന്നുള്ള ആദ്യ നടപടിയാണ് ഇത്

സംഘം ഇന്ന് ന്യൂഡൽഹിയിൽ എത്തിച്ചേരും ഇവർക്ക് മെക്സിക്കോയിൽ തങ്ങാൻ മതിയായ രേഖകൾ ഇല്ലെന്ന് അധികൃതർ അറിയിച്ചു

എല്ലാ സൈനിക നടപപടികളും അഞ്ച് ദിവസത്തേക്ക് നിർത്തിവയ്ക്കും

തുർക്കി പ്രസിഡന്റ് റിസെപ്പ് തയ്യിപ്പ് എർദോഗനും മൈക്ക് പെൻസും തമ്മിൽ അങ്കാരയിൽ നടത്തിയ ചർച്ചയ്ക്കു ശേഷമാണ് പ്രഖ്യാപനം

കേരളത്തിലെ ഡച്ച് നിക്ഷേപത്തിന് ഗവൺമെന്റ് എല്ലാവിധ സൌകര്യങ്ങളും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഡച്ച് കേരള ബന്ധം ഇരുവർക്കും പരസ്പരം ഗുണകരമായ സഹകരണത്തിന് വഴിവെക്കും കൃഷി ജലവിനിയോഗം തുറമുഖം ഉൾനാടൻ ജലഗതാഗതം ആരോഗ്യം തുടങ്ങി ഒമ്പത് മേഖലകൾ നെതർലാന്റ്സുമായി സഹകരിക്കുന്നതിനായി ഗവൺമെന്റ് തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ആലപ്പുഴ പട്ടണത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് കൊച്ചിയിൽ തിരിച്ചെത്തുന്ന വില്യം രാജാവ് വൈകിട്ട് പ്രത്യേക വിമാനത്തിൽ ആംസ്റ്റർഡാമിലേക്ക് മടങ്ങും

നാലു പേർ ഒഴികെയുള്ളവർക്ക് പ്രമാണ്ടുത്തിലുള്ള വില ലഭിക്കും